രാംനാഥ് കോവിന്ദ് ഇന്നെത്തും

ആഘോഷത്തിന്റെ ഭാഗമായ ഫെസ്റ്റിവെൽ ഓൺ ഡെമോക്രസി സമ്മേളനത്തിന് നാളെ തുടക്കമാകും ആലപ്പുഴയിലെ വെള്ളപ്പൊക്ക ദുരിതാശ്ചാസ ന് പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു കുട്ടനാട് പാക്കേജ് പുനരുജ്ജീവിപ്പിക്കാൻ കേന്ദ്രസഹായം തേടും

പരീക്ഷണാടിസ്ഥാനത്തിൽ തുറക്കേണ്ട സാഹചര്യം ഇപ്പോഴില്ലെന്ന് വൈദ്യുതിബോർഡിന്റെ വിലയിരുത്തൽ

പ്രത്യേക വിമാനത്തിൽ വൈകിട്ട് അഞ്ചിന് തിരുവനന്തപുരം എയർഫോഴ്സ് ടെക്നിക്കൽ ഏരിയയിൽ എത്തുന്ന രാഷ്ട്രപതി രാത്രി രാജ്ഭവനിൽ തങ്ങും

മറ്റന്നാൾ രാവിലെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമായും ജഡ്ജിമാരുമായും ബോൾഗാട്ടി പാലസിൽ പ്രാതൽ കൂടിക്ക്കാഴ്ച നടത്തും തുടർന്ന് ഹെലികോപ്റ്റർ മുഖേന തൃശൂരിലേക്ക് തിരിക്കും തൃശൂർ സെന്റ് തോമസ് കോളേജിന്റെ സെന്റിന്റി ആഘോഷങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും അവിട്ടെ്നിന്ന് ഉച്ചയ്ക്ക് ഗുരുവായൂരിലെത്തും ക്ഷേത്രദർശനത്തിന് ശേഷം ഉച്ചുകഴിഞ്ഞ് കൊച്ചിയിലെത്തി പ്രത്യേക വിമാനത്തിൽ ഡൽഹിയിലേക്ക് തിരിക്കും

മുടങ്ങിക്കിടക്കുന്ന കുട്ടനാട് പാക്കേജ് പുനരുജ്ജീവിപ്പിക്കാനായി കേന്ദ്രസഹായം തേടാൻ യോഗത്തിൽ ധാരണയായി

സുനിൽകുമാർ ജി സുധാകരൻ പി തിലോത്തമൻ മാത്യു

തോമസ് തുടങ്ങിയവരും വിവിധ വകുപ്പുകളുടെ മേലുദ്യോഗസ്ഥരും ചീഫ് സെക്രട്ടറിയും യോഗത്തിൽ പങ്കെടുത്തു അതേ സമയം മുഖ്യമന്ത്രി ക്ടൂട്ടനാട് സന്ദർശിക്കുന്നില്ല എന്ന് ആരോപിച്ച് പ്രതിപക്ഷ നേതാപ്പ് ർമ്മേള് ചെന്നിത്തലയും മറ്റ് പ്രതിപക്ഷ നേതാക്കളും യോഗത്തിൽ നിന്ന് പിട്ട് നിന്നു

ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ വരെയുള്ള നാലുമാസത്തെ പെൻഷനും കുടുശ്ശികയും വിതരണം ചെയ്യാനാണ് തുക അനുവദിച്ചത്

അഡീഷണൽ ലേബർ കമ്മീഷണർ എസ് തുളസീധരന്റെ അധ്യക്ഷതയിൽ ലേബർ കമ്മീഷണറേറ്റിൽ നടന്ന യോഗത്തിലാണ് തീരുമാനം

ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ മറ്റന്നാൾ ആണ് ലേലം

അപകടഭീഷണി നിലനിൽക്കുന്നതിനാൽ ഇവിടെനിന്നും സർവീസ് നടത്താൻ തയ്യാറല്ലെന്ന് സംഘടനാ പ്രതിനിധികൾ ബസ് അറിയിച്ചതിനെത്തുടർന്നാണിത് ഇനി മുതൽ സ്റ്റേഡിയം സ്റ്റാൻഡിൽ നിന്നായിരിക്കും ബസ്സുകൾ സർവീസ് നടത്തുക

മഴ മാറിനിന്നാൽ തകർന്ന റോഡുകൾ ഗതാഗത യോഗ്യമാക്കുമെന്ന സ്ഥലം എം

ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അണക്കെട്ട് പരീക്ഷണാടിസ്ഥാനത്തിൽ തുറക്കേണ്ട സാഹചര്യമില്ലെന്നാണ് വൈദ്യുതിബോർഡ് അധികൃതരുടെ നിലപാട്

ഷട്ടറുകൾ തുറന്നതോടെ മലമ്പുഴയിൽ വൈദ്യുതോത്പാദനവും ആരംഭിച്ചു

ആടുകളെയും ചെമ്മരിയാടുകളെയും ബാധിക്കൂന്നതും ് പെട്ടെന്ന് പടരുന്നതുമായ വൈറസ് രോഗമാണ് ആടുവസ്ത്ര ഒറ്റത്തവണ സൌജന്യ പ്രതിരോധ കുത്തിവെയ്പിലൂടെ സ്റ്റ്സ്കാനത്തെ എല്ലാ ആടുകളെയും രോഗപ്രതിരോധശേഷിയുള്ളവയാക്കുകയാണ് ലക്ഷ്യം പ്രതിരോധ കുത്തിവയ്പിനായി കർഷകർ അടുത്തുള്ള മൃഗാശുപത്രികളെയോ വെറ്ററിനറി സബ്സെന്റുകളെയോ സമീപിക്കണം ടടട ദുരിതാശ്വാസ നിധി സംസ്ഥാനത്ത് കാലവർഷക്കെടുതിയിൽ ദുരന്തത്തിനിരയായ കുടുംബങ്ങളെ സഹായിക്കുന്നതിനും പുനരധിവസിപ്പിക്കുന്നതിനും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഉദാരമായി സംഭാവന ചെയ്യണമെന്ന് സമൂഹത്തിന്റെ എല്ലാ മേഖലയിലുള്ളവരോടും ധനകാര്യവകുപ്പ് അഭ്യർത്ഥിച്ചു സംഭാവനകൾ ഓൺലൈനായി സമർ പ്പിക്കാം ട്ടടടടടടടടടടടടട ബലിതർപ്പണം തിരുവനന്തപുരം ജില്ലയിലെ ബലിതർപ്പണകേന്ദ്രങ്ങളിൽ കർശനമായ പ്ലാസ്റ്റിക് നിരോധനം ഏർപ്പെടുത്തി

വാസുകി ഉത്തരവിട്ടു ഗതാഗതനിയന്ത്രണം രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ കേരള സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്നും നാളെയും തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടാകുമെന്ന് പോലീസ് അറിയിച്ചു നാളെ നിയമസഭാമന്ദിരത്തിൽ നടക്കുന്ന ചടങ്ങിനോടനുബന്ധിച്ച് പാർക്കിഗ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്